ജമ്മു കശ്മീരിൽ ഷൂൽവ്വാമ ജില്ലയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടു

കൊച്ചി മരടിൽ തീരദേശ നിയമം ലംഘിച്ച് നിർമ്മിച്ച പാർപ്പിട സമുച്ചയങ്ങൾ പൊളിക്കൽ ദൌതൃം പൂർത്തിയായി

സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് ദേശീയ യുവജനോത്സവത്തിന് ലക്നൌവിൽ തുടക്കമായി

ഏകീകൃത ഗതാഗത നയത്തിലൂടെ ഉൾനാടൻ ജലഗതാഗത് വികസിപ്പിക്കുന്നതിനായി ഗവൺമെന്റ പദ്ധതികൾ ആവിഷ്ക്കരിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സാഗർമാല പദ്ധതിയിലൂടെ കേന്ദ്രം പഴയ തുറമുഖങ്ങളെ ആധുനിക വൽക്കരിക്കുകയും പുതിയ തുറമുഖങ്ങൾ വികസിപ്പിക്കുകയുമാണെന്ന് അദ്ദേഹം പറഞ്ഞു തുറമുഖ ബദ്ധിത നഗരങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ജലാധിഷ്ടിത ടൂറിസം വികസിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഫലകവും ശ്രീ

വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് പശ്ചിമ ബംഗാളിലെ ബേലൂർ മഠത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ നിയമത്തെക്കുറിച്ച് ചില യുവാക്കൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉള്ളതായും അദ്ദേഹം പറഞ്ഞു മതത്തിന്റെ പേരിൽ പീഡനം നേരിടേണ്ടി വന്നവർക്ക് പൌരത്വം നൽകുന്നതിനെ മഹാത്മാഗാന്ധി പോലും അനുകൂലിച്ചിരുന്നതായും സ്വാതന്ത്ര്യസമര സേനാനികളുടെ ആഗ്രഹും സ്ഥലമാക്കുക മാത്രമാണ് തന്റെ ഗവൺമെന്റ് ചെയ്തതെന്നും ശ്രീ മോദി വ്യക്തമാക്കി രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ ട്രിമേഖലകളിൽ നിയമം പ്രതികൂല പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചിട്ടിക്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ മേഖലകളിലെ ജനതയുടെ പ്രൂക്തിത്വത്തിനേയും സംസ്കാരത്തേയും നിയമം ബാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വിഭജനത്തിനു ശേഷം പാകിസ്ഥാനിൽ കഷ്ടത നേരിടേണ്ടി വന്നവർക്ക് നിയമ ഭേദഗതി ഗുണം ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കൊൽക്കത്തയിൽ ഇന്ന് രാവിലെ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണകർത്താക്കൾ മനസ്സ് വെച്ചാൽ ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി കിഷൻ സമ്മാൻ നിധി യോജന എന്നിവ പശ്ചിമ ബംഗാളിൽ നടപ്പിലാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു പാവപ്പെട്ടവർക്ക് സൌജന്യ ചികിത്സയും കൃഷി അധിഷ്ഠിത സഹായങ്ങളും ലഭ്യമാകുന്നില്ല

ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് ധനസഹായം കൈമാറുന്നതാണ് രണ്ട് പദ്ധതികളെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി

പൌരത്വം നഷ്ടമാകുമെന്ന പേരിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതായ്ക്കും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ പൌരൻമാരിൽ നിന്ന് പൌർത്തം എടുത്തു കളയുന്നതിനുള്ള ഏതെങ്കിലും വൃവസ്ഥകൾ ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം പ്രതിപക്ഷ പാർട്ടികളോട് പേരിൽ പാർട്ടികൾ ആവശ്യപ്പെട്ടു

പി ബോധവല്ക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു ബി

ഇൻഡോറിൽ വാർത്താ ലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

രാജ്യത്തിന്റെയും യാത്രക്കാരുടെയും താൽപര്യത്തിനുവേണ്ടിയാണ് സ്വകാര്യ മേഖലയിൽ നിന്നുള്ള നിക്ഷേപം നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഉജ്ജയിനിലും ഇൻഡോറിലും ഏകദിന സന്ദർശനത്തിന് എത്തിയതായിരുന്നു ശ്രീ

റെയിൽ ഗതാഗതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി യാത്രക്കാർ തീരെ കുറഞ്ഞ സ്റ്റേഷനുകളിൽ ട്രെയിൻ നിറുത്തുന്നത് ഒഴിവാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്ത്യയിൽ നിന്നും അങ്ങോളമിങ്ങോളമുള്ള രണ്ടായിരത്തോളം വിദ്യാർത്ഥികളും അദ്ധ്യാപകരും രക്ഷാകർത്താക്കളും പങ്കെടുക്കും

മരട് നഗരസഭയിൽ തീരദേശ പരിപാലന നിയമം ലംഘിച്ചു നിർമിച്ച നാലു കെട്ടിടങ്ങളിൽ അവസാനത്തേത് ഇന്ന് ഉച്ചയോടെ പൊളിച്ചു ഇതോടെ കെട്ടിടം പൊളിക്കുന്ന പ്രക്രിയ അവസാനിച്ചു ഹോളി ഫെയ്ത്ത് എച്ച്

ഉദ്യോഗസ്ഥർ പോലീസ് വിദഗ്ദ്ധർ തുടങ്ങിയവരെ സംയോജിപ്പിച്ചുകൊണ്ട് ദിവസങ്ങൾ നീണ്ടപരിശ്രമങ്ങൾക്കൊടുവിലാണ് കെട്ടിടങ്ങൾ പൊളിക്കുക എന്ന ശ്രമകരമായ ദൌത്യംപൂർത്തിയാക്കിയത്

കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഹിസ്ബുൾ കമാൻഡർ ഹമദ് ഖാൻ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് മറ്റു ക്ട്രണ്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഹിസ്ബുൾ മുജാഹിദീൻ ഡെപ്യൂട്ടി ചീഫ് നവീദ് ബാബു ഉൾപ്പെടെ രണ്ട് ഭീകരരെ ദക്ഷിണ കശ്മീരിലെ കുൽഗാം ജില്ലയിൽ നിന്നും ഇന്നലെ സുരക്ഷാസേന പിടികൂടിയിരുന്നു ഭീകരർക്കൊപ്പം ഡി

പി റാങ്കിലുള്ള ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനേയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കുൽഗാം ജില്ലയിലെ മിർ ബാസാറിലൂടെ സ്ഥകാര്യ വാഹനത്തിൽ സഞ്ചരിക്കവേയാണ് ഇവർ പിടിയിലായത് ഇയാൾക്കെതിരെ വാൻപോഹ് പോലീസ് സ്റ്റേഷനിൽ പ്രഥമ വിവര റിപ്പോർട്ട് നൽകിയതായി വാർത്താ വൃത്തങ്ങൾ വ്യക്തമാക്കി

ഹൈദ്രാബാദിൽ ഹൂണാർ ഹാത്ത് പരിപാടിയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ പാർട്ടികൾ കൂട്ടം ചേർന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഒരു വിഭാഗം ജനങ്ങൾക്കിടയിൽ അവർ ഭീതി ജനിപ്പിക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇവർ ഭരണഘടന വ്യക്തമാക്കി മനസ്സിലാക്കണെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു രാജ്യത്തെ പൌരൻമാർക്ക് പൌരത്വഭേദഗതി നിയമം ഒരു തരത്തിലും ദോഷം ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ഗവൺമെന്റ് സ്ഥീകരിച്ചു നടപടികളുടെ അടിസ്ഥാനത്തിലല്ല തെരഞ്ഞെടുപ്പുകൾ വിജയ് ്ച്ചിരുന്നതെന്ന് ജനങ്ങൾ പറഞ്ഞിരുന്നതായും ഈ ചിന്താഗതിയിൽ ആം അദ്മി പാർട്ടി മാറ്റം കൊണ്ടുവന്നതായും ശ്രീ

ഗവൺമെന്റ് പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്റെ പാർട്ടി വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ജെ

ഇതിനായി ജനങ്ങളിൽ നിന്നും സ്വരൂപിച്ച പണം അരവിന്ദ് കെജ്രിവാൾ ഗവൺമെന്റ് ശരിയായി വിനിയോഗിച്ചില്ലെന്നും പാർട്ടി എം

ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ വായുമലിനീകരണം നിയന്ത്രിക്കാൻ അവശ്യനടപടികൾ സ്വീകരിക്കാത്തിന് ഡൽഹി ഗവൺമെന്റിന് മേൽ ദേശീയ ഹരിത ട്രൈബൂണൽ അടിക്കടി പിഴ ചുമത്തുന്നതായും അവർ ആരോപിച്ചു

രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നീണ്ണും ഒരുമിച്ചു കൂടിയ യുവജനങ്ങളോട് തദ്ദേശീയമായി ഉല്പ്പാട്ടിപ്പിച്ച ഉല്പന്നം വാങ്ങുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിട്ട്യോ സന്ദേശത്തിൽ പറഞ്ഞു ഇതു വഴി രാജ്യത്തിന്റെ ജനങ്ങളെ ്രസ്ഹായിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര യുവജന കാർട്ട്കായിക വകുപ്പ് മന്ത്രി കിരൺ റിജിജു മിടുക്കരായ യുവാക്കൾക്ക് ്ഗവ മുന്തിയ പരിഗണന നല്കുമെന്ന് പറഞ്ഞു

ഇന്ത്യൻ ആധ്യാത്മികതയും വേദാന്തവും യോഗയും ലോകത്തിന് പരിചയപ്പെടുത്തിയത് സ്വാമി വിവേകാനന്ദനാണ്